നീതിപൂർവ്വകമായ പുന രധിവാസം സാധ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭായോഗത്തി നുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നവകേരളനിർമ്മാണം വേഗത്തിലാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു പ്രളയാനന്തര കേരളത്തിന്റെ പുനർ നിർമ്മാണത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം നിർബ ന്ധമാക്കിയതായി മുഖ്യമന്ത്രി പറഞ്ഞു നൂതനവും ആധു നികവുമായ സാങ്കേതികവിദ്യ പുനർനിർമ്മാണത്തിന് ഉപ യോഗിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പദ്ധതികളുടെ നടത്തിപ്പിന് മുഖ്യമന്ത്രി ചെയർമാ നായി ഉപദേശക സമിതിയും രൂപീകരിച്ചു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കേന്ദ്ര മന്ത്രി അൽഫോൺസ് കണ്ണന്താനവും ഉപദേശകസമിതിയിൽ അംഗങ്ങളാണ് റവന്യൂ ജലവിഭവം ഗതാഗതം തുറമുഖം വകുപ്പു മന്ത്രി മാരും ടി കെ എ നായർ എം എ യൂസഫലി മുരളി തുമ്മാരു കുടി എന്നിവരും സമിതിയിലുണ്ടാകും

പദ്ധതികൾ ചുവപ്പുനാടയിൽ കുരുങ്ങാതെ സമയബന്ധിതമായും ശാസ്ത്രീയവുമായി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നവകേരള നിർമ്മാണത്തിനായി മന്ത്രിമാരുടെ വിദേ ശയാത്രയ്ക്ക് കേന്ദ്രാനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ യെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രളയ ദുരിതാശ്ചാസത്തിന് വിദേശസഹായം സ്വീകരിക്കുന്നതിന് കേന്ദ്രത്തിന് ഇപ്പോ ഴും വൈമനസ്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

പുനർനിർമ്മാണ പുനരധിവാസ പദ്ധതികൾക്ക് സംഭാവന നൽകുന്നതിന് തയാറാക്കിയ ക്രൌഡ് ഫണ്ടിങ്ങ് വെബ് പോർട്ടൽ ഉദ്ഘാടനം സ്ഥാപനങ്ങൾക്കും പദ്ധതികൾക്ക് പോർട്ടൽ വഴി സംഭാവന നൽകാനാകും

അബുദാ ബിയിൽ പ്രവാസിസംഘടനകളുടെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും വെള്ളിയാഴ്ച ദുബായിലും ശനി യാഴ്ച ഷാർജ റാസൽഖൈമ അജ്മാൻ ഫുജൈറ ഉമ്മുൽഖുവൈൻ എന്നിവിടങ്ങളിലും മുഖ്യമന്ത്രി വിവിധ പ്രവാസി സംഘടനകളുടെ പരിപാടികളിൽ പങ്കെടുക്കും ശബരിമലയിലെ സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി വിധിയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാ ക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ അറിയിച്ചു വിധി മറികടക്കാൻ നിയമ നിർമ്മാണം നടത്തില്ലെന്നും പുനഃപരിശോധനാഹർജി നൽകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധൃമങ്ങ ളോട് പറ ഞ്ഞു

പുരുഷനുളള എല്ലാ അവകാശങ്ങളും സ്ത്രീകൾക്കു മുണ്ടെന്ന് ഗവൺമെന്റ് സുപ്രീംകോടതിയിൽ സത്യവാ ങ്മൂലത്തിൽ വൃക്തമാക്കിയിരുന്നു ഇനിയത് മാറ്റിപറ യാനാവില്ലെന്നും പിണറായി വൃക്തമാക്കി ശബരിമലയിലേക്ക് പോയ കാർ യാത്രക്കാരെ സ്ത്രീകൾ പരിശോധിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി ശബരിമലയിലേക്ക് പോകു ന്നവരെ പരിശോധിക്കാൻ ആർക്കും അവകാശമില്ലെന്നും അദ്ദേഹം അറിയിച്ചു അങ്ങനെയുണ്ടായാൽ കർശ്ശന നട പടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിശ്ചാസി കൾക്ക് എപ്പോഴും അവരുടെ വിശ്വാസ പ്രകാരം കാര്യങ്ങൾ നടത്താൻ കഴിയണം അതിനു തടസം വരുന്ന ഒരു നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നു ണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സാധാരണ ശബരി മലയിൽ പോകുന്നവർ ശാന്തമായി മടങ്ങി വരാറുണ്ട് അതിന് ഭംഗം വരുന്ന എന്തെങ്കിലും ഉണ്ടാകുന്നത് ഗവ ണ്മെന്റ് അംഗീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

തന്ത്രി സമാജം പന്തളം കൊട്ടാരം അയ്യപ്പ സേവാ സംഘം അയ്യപ്പ സേവാ സമാജം തന്ത്രിമാർ താഴ്മൺ കുടുംബം യോഗ ക്ഷേമ സഭ എന്നിവയുടെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് യോഗത്തിനുമുമ്പ് പന്തളം രാജകൊ ട്ടാരം പ്രതിനിധികളും തന്ത്രിമാരും വെവ്വേറെ യോഗം ചേർന്നു

യുവതികൾ ശബരിമലയിലേക്ക് പോകുന്നുണ്ടോ എന്നാ ണവർ പരിശോധിക്കുന്നത് സ്ത്രീകളടക്കം നൂറുകണ ക്കിന് വിശ്വാസികളാണ് നിലയ്ക്കലിൽ തമ്പടിച്ചിരിക്കു ന്നത് ഇതിനിടെ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് കെ എസ് ആർ ടി സി ബസിൽ യാത്ര ചെയ്ത വനിതാ മാധ്യമ പ്രവർത്തകരെ സമരക്കാർ തടഞ്ഞു പൊലീസ് ഇടപെട്ട് മാധ്യമ പ്രവർത്തകരെ ബസിൽ നിന്നും ഇറ ക്കിവിട്ട് രംഗം ശാന്തമാക്കി കൂടുതൽ വനിതാപൊലീ സിനെ നിലയ്ക്കലിൽ വിന്യസിച്ചിട്ടുണ്ട്

ബാലൻ പറഞ്ഞു പാലക്കാട് തരൂരിൽ കെ

കേശവമേനോൻ സ്മാരക ട്രസ്റ്റ് ഓഡിറ്റോറിയം നവീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കാലാകാലങ്ങളായി പടുത്തുയർത്തിയ സാംസ്കാരിക ബോധം സംരക്ഷിക്കപ്പെടണം കേരളത്തിലെ സ്ത്രീകൾക്ക് മൌലികാവകാശങ്ങൾ പാടില്ലെന്ന ആശയ പ്രചരണം അനുവദിക്കാനാവില്ലെന്നും എ

ബാലൻ പറഞ്ഞു കലകലകലകലകലകലകല ശബരിമല വിഷയത്തിൽ മധൃ തിരുവിതാംകൂറിനെ കണ്ണൂരാക്കി മാറ്റാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണെന്ന് കെ പി സി സി പ്രസി ഡണ്ട് മുല്ല പ്പളളി രാമ ച ന്ദ്രൻ പറഞ്ഞു ബി ജെ പി ശബരിമലയെ അയോധ്യയാക്കി മാറ്റുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു

ജീവനക്കാർ തീരുമാനത്തിനെതിരെ നടത്തിയ മിന്നൽ സമരവും ഇതേ തുടർന്ന് പിൻവലിച്ചു കോർപ റേഷന്റെ തീരുമാനത്തിനെതിരെ കെ എസ് ആർ ടിസി ജീവനക്കാർ നടത്തിയ മിന്നൽ സമരം സംസ്ഥാനത്ത് യാത്രക്കാരെ ദുരിതത്തിലാക്കി സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരം പല ഡിപ്പോകളിലും സർവീസിനെ ബാധിച്ചു കോഴിക്കോട് കണ്ണൂർ കാസർകോട് കോട്ടയം കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ സർവീസുകൾ തടസ്സപ്പെട്ടിരുന്നു മന്ത്രി എ കെ ശശീന്ദ്രൻ ഇടപെട്ടു നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിച്ചത്

ആരോപണങ്ങൾ തന്നെ അപകീർത്തിപ്പെടുത്താൻ മനഃപ്പൂർവും ഗൂഢാലോചന നടത്തി കെട്ടിച്ചമച്ചതാണെന്ന് കോടതിയിൽ സമർപ്പിച്ച പരാതിയിൽ അക്ബർ വ്യക്ത മാക്കി മുൻകൂട്ടി നിശ്ചയിച്ചതുപ്രകാരമാണ് ആരോപണ മെന്നും പരാതിയിൽ പറയുന്നു അതിനിടെ എം ജെ അക്ബറിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് വനിതാ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ രാഷ്ട്രപതി രാം നാഥ് കോവി ന്ദിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നിവേദനം നൽകി ഇര കൾക്കെ തിരെ നൽകിയ മാന ന ഷ്ട കേസ് പിൻവ ലി ക്കണ മെന്നും അവർ ആവശ്യപ്പെട്ടു

കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി മൻസുഖ് വി മൻഡാവിയ ന്യൂഡൽഹിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു

അലസ മായ ഡ്രൈവിംഗ് മദ്യപിച്ചും ഹെൽമറ്റ് ധരിക്കാതെയും വാഹനം ഓടിക്കൽ തുടങ്ങി റോഡപകടങ്ങൾ ക്ഷണി ച്ചു വരുത്തുന്നത് തടയാനായി യുവജനങ്ങളിൽ അബോധം സൃഷ്ടിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം

പ്ലാസ്റ്റിക് ബാഗുകളും നാപ്കിനുകളും ബോട്ടി ലുകളും ടോയ്ലറ്റുകളിൽ കുടുങ്ങി വൃത്തിഹീനമാകുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് നടപടി

പെട്രോളിന്

കുത്തിവെപ്പെടുക്കുന്നതിൽ പിന്നിലായിരുന്ന മലപ്പുറം ജില്ലയിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് നടത്തിയ ഊർജ്ജിത പ്രവർത്തനങ്ങളി ലൂടെ മുന്നേറാനായതാണ് നേട്ടമായത്

പ്രതിരോധ കുത്തിവെപ്പെടുക്കാത്ത രണ്ട് വയസ്സിനു താഴെയുളള കുട്ടികൾ ഗർഭിണികൾ എന്നിവരെ ലക്ഷ്യമാക്കിയായിരുന്നു പദ്ധതി നിർമ്മാണ പ്രവർത്തനങ്ങളിലെ കാലതാമസം ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണെന്ന് മന്ത്രി മാത്യു ടി തോമസ് പറഞ്ഞു കാസർകോട് ഒടയംചാലിൽ കുടിവെളള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗവൺമെന്റ് പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ മാത്രമാണ് കാലതാമസം ഉണ്ടാവുന്നത് സ്വകാരൃമേഖലയിലെ പദ്ധതികൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കാല താമസം ഉണ്ടാകുന്നി ല്ലെന്നും ഈ സ്ഥിതി മാറണമെന്നും മന്ത്രി പറഞ്ഞു

കൽപ്പറ്റയിൽ കേരളഫീഡ്സ് മാനേജിംഗ് ഡയറക്ടർ ബി ശ്രീകുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു

കൊഴിഞ്ഞു പോയ എല്ലാ കുട്ടികളെയും തിരികെയെത്തിക്കാനുളള പദ്ധതിക്കായി ജില്ലാ കർമ്മസേന രൂപീകരിച്ചു ജില്ലാക ലക്ടർ എ